ഊർജ്ജിതമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു

സി എം

പ്രധാനമന്ത്രിയുടെ നിർദ്ദേശ പ്രകാരം ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്നലെയും ഇന്നുമായി നിരവധി ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ പുരോഗമിക്കുകയാണ്

വോയ്സ് കണ്ടെയ്മെന്റ് സോണുകളിൽ എല്ലാ വീടുകളിലും ആരോഗ്യ സർവ്വേ നടത്താനും ആവശ്യമെങ്കിൽ കോവിഡ് പരിശോധന നടത്താനും ഇന്നലെ കോർപ്പറേഷൻ മേയർമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ് അമിത് ഷാ ആവശ്യപ്പെട്ടിരുന്നു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഏകോപനത്തോടുള്ള നടപടികൾ ആവശ്യമാണെന്നും കേന്ദ്രം ഇതിനായി എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി രാജ്യതലസ്ഥാനത്തെ ഏറ്റവും വേഗം കോവിഡ് മുക്തമാക്കേണ്ടതുണ്ടെന്നും ഇതിനായി പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും പൊലീസ് ഉറപ്പുവരുത്തണമെന്നും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എന്നാൽ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കണം സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ആരോഗ്യമന്ത്രാലയത്തിന്റെ നടപടി

ഇതുവഴി രോഗികൾക്ക് ഒ പി അപ്പോയ്ന്റ്മെന്റുകൾ എടുക്കാനാവും

ആരോഗ്യമന്ത്രാലയം നാല് ഡോക്ടർമാരടങ്ങിയ മൂന്ന് ടീമുകളെ എയിംസിൽ നിയോഗിച്ചിട്ടുണ്ട്

കോവിഡ് മാർഗ്ഗുനിർദ്ദേശ ങ്ങൾ പൂർണ്ണമായി പാലിച്ചായിരിക്കും സബർബൻ സർവ്വീസുകൾ പുനരാംരഭിക്കുന്നതെന്ന് വെസ്റ്റേൺ റെയിൽവേ ട്വിറ്ററിൽ അറിയിച്ചു

ബ്രസീൽ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് രോഗബാധയിൽ അമേരിക്കയ്ക്ക് പിന്നിൽ

കോവിഡ് പ്രതിസന്ധി തരണം ചെയ്യാൻ സമ്പദ് വ്യവസ്ഥ പഴയ നിലയിലേക്ക് എത്തേണ്ടത് അനിവാര്യമാണ്

പ്രകാശ് ജാവദേക്കർ അറിയിച്ചു

കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇവരെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും എ

പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ഇന്ത്യ ബന്ധപ്പെട്ടിട്ടുണ്ട്

ഡെങ്കു രോഗം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ഊർജ്ജിതമാക്കാൻ നാം പ്രതിജ്ഞ കൈക്കൊള്ളുന്നതായി കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ ട്വിറ്റർ സന്ദേശത്തിൽ കുറിച്ചു

ഇ്ത്തരം വ്യാജ പ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

മൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയും മൂന്ന് ആരോഗ്യപ്രവർത്തകർക്കും രോഗം ബാധിച്ചു

എസ്

ടി സി

സ്വർണ്ണവിലയിൽ മാറ്റമില്ല

നാശനഷ്ടങ്ങളുണ്ടായതായി റിപ്പോർട്ടില്ല

മഹാരാഷ്ട്ര ഝാർഖണ്ഡ് ബിഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു